വംശജരായ അമേരിക്കക്കാരോട് സംവദിക്കുന്ന ഹൌഡി മോദി സംഗമം ഇന്ന്

വിഷയം സുപ്രീംകോടതി ന്റാള്ളെ വീണ്ടും പരിഗണിക്കും പാലാ നിയമസഭാ ഉപ്പ്തെരഞ്ഞെടുപ്പ് നാളെ

വോട്ടെടുപ്പിനുള്ള ക്ര്മീകരണങ്ങൾ പൂർത്തിയായി

ഇടുക്കിയിൽ വ്യാഴാഴ്ച തുടക്കമാകും

ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുന്ന ഹൌഡി മോഡി പരിപാടി ഇന്ന്

തുടർന്ന് ഊർജ്ജ രംഗത്തെ കമ്പനികളുടെ പ്രതിനിധി സംഗമത്തിൽ പ്രധാനമന്ത്രി സംബന്ധിച്ചു

എൻ

ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിലും പങ്കെടുക്കും

സ്വഛ് ഭാരത് അഭിയാൻ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പുരസ്കാരവും ശ്രീ മോദി ഏറ്റു വാങ്ങും

കഴിഞ്ഞ വെള്ളിയാഴ്ച ചീഫ് സെക്രട്ടറി ടോം ജോസ് സുപ്രീംകോടതിയിൽ ഹാജരായി സത്യവാങ്മൂല്പ് ന്ൽകിയിരുന്നു

മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലാണ് പ്രതിക്ഷ നേതാവ് ഇക്കാര്യം ഉന്നയിച്ചത്

വട്ടിയൂർക്കാവ് കോന്നി എറണാകുളം അരൂർ മഞ്ചേശ്വരം മണ്ഡലങ്ങളിലാണ് ഉപതെരെഞ്ഞെടുപ്പ്

അഞ്ചിന്റ് സൂക്ഷ്മ പരിശോധന നടത്തും

രാവിലെ ഗുരുവായൂർ പോലീസ് സ്റ്റേഷന് തറക്കല്ലിടും

വൈകിട്ട് തേക്കിൻകാട് മൈതാനിയിൽ പൊതു യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും

കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ നടക്കുന്ന ചടങ്ങിനെത്തുന്ന ഉപരാഷ്ട്രപതി എം

ഗവർണറുടെ സന്ദർശനത്തിനു മുന്നോടിയായി ഗസ്റ്റ് ഹൌസിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി

ബുദ്ധി പരിമിതി പരിഹരിക്കാൻ കഴിയുന്ന ആധുനിക ഉപകരണങ്ങളും കേന്ദ്രത്തിലുണ്ട്

നിശബ്ദ പ്രചാരണ ദിനമായ ഇന്ന് പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ

രാത്രി ഏഴിന് കളി ആരംഭിക്കും

ആദ്യകളി മഴയെത്തുടർന്ന് ഉപ്പേക്ഷിച്ചിരുന്നു

മന്ത്രി എം എം മണി അധ്യക്ഷത വഹിക്കും ദ്ദാന് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അവാർഡ് ദാനവും വിദ്യാഭ്യാസമന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിക്കും ഒളിമ്പൃൻ മേഴ്സി കുട്ടൻ അധ്യക്ഷത വഹിക്കും സെവൻസ് ഫുട്ബോൾ കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് കേരളോത്സവത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് കണ്ണൂരിൽ തുടക്കമായി

ഇന്ന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ കലക്ടർ ടി

സുഭാഷ് ഉദ്ഘാടനം ചെയ്യും

കാലവർഷക്കെടുതിയിൽ ത്തകർന്ന തൂക്കുപാലമാണ് പുനർ നിർമ്മിച്ച് നാട്ടുകാർക്കായി തുറന്നു കൊടുത്തത് ഫാമിലെ ജനങ്ങൾക്ക് കേളകം കണിച്ചാർ കൊട്ടിയൂർ പഞ്ചായത്തുകളുമായി ബന്ധപ്പെടാനള്ള ഏറ്റവും അടുത്ത വഴിയാണ് ഈ പാലം

ഓട്ടോ സ്റ്റാന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് മർദനമേറ്റ ഇയാളെ പൊള്ളലേറ്റ നിലയിൽ മെഡിക്കൽ കോളെജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് രണ്ട് പേരെ എലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൊലപാതക കുറ്റത്തിന് കേസെടുക്കണമെന്ന് ബി ജെ പി നിയോജക മണ്ഡലം കമ്മറ്റി ആവശ്യപ്പെട്ടു പാലാരിവട്ടം പാലാരിവട്ടം അഴിമതിക്കേസിൽ പ്രതികളായ മുൻ പൊതുമരാമത്ത് സെക്രട്ടറി ടി ഒ സ്പൂരജ് അടക്കമുളളവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗ്ഗണിക്കും കഞ്ചാവ് പതിനൊന്ന് കിലോ കഞ്ചാവുമായി ഒരാൾ അടിമാലി നാർകോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്കാഡിന്റെ പിടിയിലായി മാങ്കുളം ആറാം മൈൽ കരയിൽ ഫ്രാൻസിസ് തോമസ് ആണ് പിടിയിലായത് ബാങ്ക് പണിമുടക്ക് രാജ്യത്തെ ബാങ്ക് ലയനത്തിൽ പ്രതിഷേധിച്ചും വേതന പരിഷ്കാരം നടപ്പാക്കണമെന്ന് ആവശൃപ്പെട്ടും ബാങ്ക് ഓഫീസർമാരുടെ സംഘടനകൾ രണ്ടു ദിവസം പണിമുടക്കും

ദേശീയതലത്തിലുള്ള നാല് സംഘടനകൾ സംയുക്തമായാണ് പണിമുടക്കിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്

രാം വിലാസ് പാസ്വാൻ വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ നെല്ലിന് താങ്ങുവില ഏർപ്പെടുത്തണമെന്ന ആവശ്യം പരിഗണിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി രാംവിലാസ് പാസ്വാൻ പറഞ്ഞു ഇന്നലെ മണിപ്പൂരിലെ ബിഷ്ണുപൂരിൽ ഭക്ഷ്യ കോർപ്പറേഷന്റെ സംഭരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി

കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന ക്ഷേമ പദ്ധതികൾ യഥാർഥ ഗുണഭോക്താക്കളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണെന്നും ശ്രീ പാസ്വാൻ പറഞ്ഞു

ഓർബിറ്ററും എട്ട് അനുബന്ധ ഉപകരണങ്ങളും ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യക്ഷമമായി പ്രവർത്തനം നടത്തുന്നു ദൌത്യത്തിന്റെ ഭാഗമായ വിക്രവുമായുള്ള വാർത്താവിനിമയബന്ധം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ദേശീയതലത്തിലുള്ള ഒരു വിദഗ്ദ്ധ സംഘം പരിശോധന നടത്തിവരികയാണ്